കോവിഡ് പ്രതിരോധ പ്രവർത്തകർക്ക് ഐകൃദാർഢൃവുമാറ്റെത്തിയ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾക്ക് പ്രധ്യാനമന്ത്രിയുടെ അഭിനന്ദനം ലോക്ഡൌൺ മൂന്നാം ഘട്ടം നാളെ മുതൽ കേന്ദ്ര നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് നാളെ നിലവിൽ വരും വിദേശത്ത് നിന്ന് മടങ്ങിയെത്തി ക്വാറന്റൈനിൽ കഴിയുന്ന പ്രവാസികൾ സ്വയം റിപ്പോർട്ട് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

കണ്ണൂർ ജില്ലയിൽ ചികിത്സയിലായിരുന്ന കാസർഗോഡ് സ്വദേശിയുടെ പരിശോധനാഫലമാണ് ഇന്ന് നെഗറ്റീവായത്

ഒ പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്

വയനാട് ജില്ലയിലെ മാനന്തവാടി എറണാകുളം ജില്ലയിലെ എടക്കാട്ടുവയൽ പഞ്ചായത്ത് മഞ്ഞള്ളൂർ പഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ പഞ്ചായത്ത് എന്നിവയാണ് പുതിയ ഹോട്ട് സ്പോട്ടുകൾ

ലോക് ഡൌണിൽ ഇനി അവശേഷിക്കുന്ന ദിവസങ്ങൾകൂടി ഫലപ്രദമായി വിനിയോഗിക്കാൻ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രി ഡോ

ഇതിലൂടെ രോഗവ്യാപനത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാനാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു

ശ്രീനഗർ മുതൽ തിരുവനന്തപുരം വരെയും അസ്സമിലെ ദിബ്രുഗഡ് മുതൽ ഗുജറാത്തിലെ കച്ച് വരെയും വ്യോമസേനയുടെ നേതൃത്വത്തിൽ യുദ്ധവിമാനങ്ങൾ ആകാശ പരേഡും ഹെലികോപ്ടറുകളിൽ കോവിഡ് ആശുപത്രികൾക്ക് മുകളിൽ പുഷ്പവൃഷ്ടിയും നടത്തി

നാവികസേനയുടെയും തീരസുരക്ഷാ സേനയുടേയും നാല് കപ്പലുകൾ ഇന്ന് കൈകിട്ട് കടലിൽ നങ്കൂരമിട്ട് വർണ്ണവിളക്കുകൾ തെളിയിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് ആദരവു പ്രകടിപ്പിക്കും പാങ്ങോട് മിലിട്ടറി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ കാർത്തിക് ശേഷാദ്രി സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് എത്തി ഗ്ലൌസ് മാസ്ക് തുടങ്ങിയവ പോലീസിന് കൈമാറി

ഹോട്ട് സ്പോട്ടുകളിലൊഴികെ ഗ്രീൻ ഓറഞ്ച് സോണുകളിൽ അന്തർ ജില്ലാ യാത്രയ്ക്ക് അനുമതിയുണ്ട്

സ്ർക്കാർ തീരുമാനങ്ങൾ താഴെതട്ടിൽ നടക്കുന്നുണ്ടെന്ന്ട് ഉൾപ്പ് വരുത്താൻ പ്രാദേശിക സമിതികളും വാർഡുതല നിരീക്ഷണ സമിതിയും ഉണ്ടാകും ഈ സമിതികൾ വീടുകളുമായി പ്രഖ്ന്ധപ്പെട്ട് വയോജനങ്ങളുടെയും രോഗമുള്ളവരുടെയും പ്രകാര്യത്തിൽ പ്രത്യേക കരുതൽ എടുക്കണമെന്ന് മുഖ്യമിന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്

മുഖ്യമന്ത്രി പ്രവാസി വിദേശത്തു നിന്ന് പ്രവാസികൾ മടങ്ങിയെത്തി കാറന്റൈനിൽ കഴിയുമ്പോൾ അവർ സ്വയം റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി

നിശ്ചിത സമയത്ത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കുന്ന സംവിധാനമുണ്ടാവും ഇവരെ ബന്ധപ്പെടുന്നതിനും പരിശോധിക്കുന്നതിനും എല്ലാ പഞ്ചായത്തിലും ഡോക്ടർമാരെയും ആവശ്യമായ മൊബൈൽ ക്ളിനിക്കുകളും ടെലി മെഡിസിൻ സംവിധാനവും ഏർപ്പെടുത്തു മെന്നും അദ്ദേഹം അറിയിച്ചു സംസ്ഥാനത്തുള്ളവരുടെ കാര്യത്തിലും ഇതേ നടപടി തന്നെ സ്വീകരിക്കുമെന്നും സംസ്ഥാനത്തിന് പുറത്ത് വീടുള്ളവർ തത്ക്കാലം അവിടെ തന്നെ തുടരണമെന്ന് അഭൃർത്ഥിച്ചിട്ടുണ്ടെന്നും മുഖൃമന്ത്രി പറഞ്ഞു

ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ കേസ് വരുമ്പോൾ അതിനെ ശരിയായ രീതിയിൽ പ്രതിരോധിക്കുക എന്നത് എല്ലാക്കാലത്തും സർക്കാരിന് പ്രധാനമാണ്

രാജൃത്തെ മിക്കവാറും സംസ്ഥാനങ്ങൾക്ക് ഹെലിക്കോപ്റ്ററുകളോ വിമാനങ്ങളോ ഉണ്ടെന്നും വ്യോമസേനാ വിമാനങ്ങൾ ഉള്ളപ്പോൾ തന്നെ സുരക്ഷ മുൻനിർത്തി കേന്ദ്രവും വിമാനങ്ങൾ വാങ്ങിയിട്ടു ണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വാഹനങ്ങൾ കാലഹരണ പ്പെട്ടിട്ടും അപൂർവമായി മാത്രമാണ് സർക്കാർ പുതിയത് വാങ്ങുന്നത് തന്റെ ഉപദേഷ്ടാക്കൾക്ക് എല്ലാവർക്കുമായി ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന് നൽകുന്നത്ര ശമ്പളമോ ആനുകൂലൃങ്ങളോ നൽകുന്നില്ലെന്നും മുഖ്യമന്ത്രി വൃക്തമാക്കി

സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രൂമച്ചന്ദ്രൻ

തിരിച്ചു പോകാൻ താത്പര്യമില്ലാത്തവരേയും മടങ്ങാൻ നിർബന്ധിക്കുന്നതായി പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയത് വെള്ളിയാഴ്ച മുതലാണ് അതിഥി തൊഴിലാളികൾക്ക് മടങ്ങുന്നതിന് കേരളത്തിൽ നിന്ന് ട്രെയിൻ സർവീസ് ആരംഭിച്ചത്

ഓപ്പറേഷൻ സ്നേഹ യാത്ര എന്ന് പേരിട്ടിട്ടുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ജില്ലയിൽ പൂർത്തിയായി വരുന്നു ബുധനാഴ്ചയാണ് ജില്ലയിൽ നിന്നും അതിഥി തൊഴിലാളികൾക്കുള്ള രണ്ടാമത്തെ ട്രെയിൻ യാത്ര തിരിക്കുക

മൂന്നാം ഘട്ട ലോക് ഡൌൺ നാളെ തുട്ടങ്ങുനിരിക്കെ നിയന്ത്രണങ്ങൾ ലംഘിക്കപ്പെടുന്നില്ല എന്നൂർപ്പു വരുത്താനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്തിൽ സ്വീകരിച്ചു വരികെയാണ്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ

കാർഷിക സ്വയംപര്യാപ്തത ലക്ഷ്യമിട്ട് എല്ലാവരും കൃഷിയിലേക്ക് തിരിയണമെന്ന മുഖൃമന്ത്രിയുടെ ആഹ്വാനം കണക്കിലെടുത്താണ് മത്സരം സംഘടിപ്പിക്കുന്നത്

കാസർഗോഡ് ഇൻട്രോ ഭക്ഷ്യസുരക്ഷാ ക്യാംപെയിന്റെ പ്രിട്ട്ഗ്മായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ ക്രൂഭിമുഖൃത്തിൽ നടപ്പാക്കുന്ന ഞാനും എന്റെ അയൽക്കൂട്ടവും കൃഷിയിലേക്ക് പദ്ധതി നാളെ ആരംഭിക്കും

ക്കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്

ശുദ്ധീകരണത്തി നായാണ് ആസ്ഥാനം അടച്ചിടുന്നതെന്ന് സി

രോഗം ബാധിച്ചയാളുമായി സമ്പർക്ക മുണ്ടായവരെ നിരീക്ഷണത്തിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്

വാർത്തകളുടെ നിജസ്ഥിതി അറിയാൻ പൊതുജനങ്ങൾക്കും ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ് വേനൽ മഴ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ വേനൽ മഴയും ചില നേരങ്ങളിൽ പെട്ടെന്ന് വീശിയടിക്കുന്ന ശക്തമായ കാറ്റും ഇടിമിന്നലും തുടരാൻ സാധൃതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു പൊതുജനങ്ങളും ്യൂബിഡപ്പെട്ടവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത് നിവാരണ അതോറിറ്റി നിർദേശിക്കുന്നു

കുളനട കൈതക്കാട്ട് പറയന്റയ്യത്ത് അഖിൽ എസ് കുമാർ ആണ് മരിച്ചത്

ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാളെ നാട്ടുകാർ രക്ഷപെടുത്തി

കൂടുതൽ ലാബുകൾക്ക് അനുമതി നൽകിക്കൊണ്ട് പരിശോധനകളുടെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുന്നതായും ഐ സി എം

ഗരീബ് കല്യാൺ യോജന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പ്രകാരമുള്ള പി എഫ് ആനുകൂല്യങ്ങൾക്കായി സംസ്ഥാനത്തെ എല്ലാ തൊഴിലുടമകളും ഇ സി ആർ പോർട്ടൽ വഴി നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് അധികൃതർ അറിയിച്ചു കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സ്ഥാപനങ്ങളിൽ പി എഫ് അടച്ചുകൊണ്ടിരിക്കുന്ന അംഗങ്ങളുടെ ൃഇ

എസ്

ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്രൃം ലഭിക്കുന്നുണ്ടെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ജനങ്ങളെ ബോധവൽക്ക രിക്കാനും വിവരങ്ങളറിയിക്കാനും മാധ്യമങ്ങൾക്ക് അധികാരമു ണ്ടെന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ശ്രീ ജാവ്ദേക്കർ പറഞ്ഞു